സംസ്ഥാനത്ത് നടന്ന പ്രളയാനന്തര പകർച്ചവൃാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയം കണ്ടതായി മന്ത്രി

കണ്ണൂർ അന്താരാഷ്ട്ര വിമാന്ത്താവളത്തിന്റെ അവസാനവട്ട പരിശോധനക്ക്ൾ നാളെ തുടങ്ങും

വിനോദസഞ്ചാര മേഖലക്ക് പുത്തൻ പ്രതീക്ഷ നൽകി കേന്ദ്രടൂറിസം മന്ത്രാലയത്തിന്റെ പരൃടൻ പർവ് ഇന്ത്യ ടൂറിസം മാർട്ട് പരിപാടികൾക്ക് ഇന്ന് തുടക്കം

ഇന്ന് ലോക ഓസോൺ ദിനം

പ്രളയമേഖലകളിൽ നിന്നും പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കൺട്രോൾ റൂമുകളുടെയും താൽക്കാലിക ആശുപത്രികളുടെയും പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു എന്നാൽ സേവനസന്നദ്ധരായ ഡോക്ടർമാരുടെ സഹായത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായിതന്നെ തുടരുമെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിൽ നടന്ന പ്രത്യേക അവലോകന യോഗത്തിന്റുശേഷമാണ് മന്ത്രി കെ

ശൈലജ ഇക്കാര്യം പൃക്തമാക്കിയത്

തീരമേഖലയ്ക്കായി പ്രത്യേക പദ്ധതികൾ ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രളയദുരന്തത്തിൽ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട മത്സൃത്തൊഴിലാളികൾക്ക് ആയുഷ് വകുപ്പിന്റെ അർപ്പിച്ച് ആദരവ് തിരുവനന്തപുരം വേളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ശൈലജ

തീരദേശവാസികൾക്കായി ആയുർവ്വേദ ഹോമിയോ സിദ്ധ വിഭാഗങ്ങളിലെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തി

നിർബന്ധിത വിഭവസമാഹരണം സദുദ്ദേശൃത്തോടെ ആരംഭിച്ച ലക്ഷ്യത്തെപരാജയപ്പെടുത്തുമെന്നാണ് ഗവൺമെന്റിന്റെ വിലയിരുത്തൽ സ്വമേധയാ നൽകുന്ന പണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് സ്വരൂപിക്കേണ്ടതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ടടടടടട കണ്ണൂർ വിമാനത്താവളം പരിശോധന കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അവസാനവട്ട പരിശോധനകൾക്കായി വ്യോമയാന മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നാളെ എത്തിച്ചേരും മൂന്നു ദിവസങ്ങളിലായാണ് പരിശോധന

റൺവേ എയർട്രാഫിക് എന്നിവയുടെ പരിശോധനയും നടത്തും

കൂടുതൽ വിവരങ്ങളുമായി നവനീത വോയിസ് വിനോദസഞ്ചാരമേഖലയിൽ സാംസ്കാരിക വൈവിധ്യത്തിനു പ്രാമുഖ്യം നൽകി ടൂറിസം മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പര്യടൻ പർവ് ഇന്ന് ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും

പ്രളയദുരിത്തിൽ നിന്നും കരകയറുന്ന കേരളത്തിലെ വിന്റോദ്സഞ്ചാരമേഖലയ്ക്ക് വിവിധ സഹായങ്ങൾ ഇന്ത്യൻ ടൂറിസം മാർട്ടിനെ കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു

ഓസോൺ പാളിക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും ലോകജനതയെ ഓർമ്മിപ്പിക്കുകയാണ് ഓസോൺ ദിനം കൂടുതൽ വിവരങ്ങളുമായി നവനീത

ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവുമുത്ത് ആവശ്യമായ അന്തരീക്ഷത്തിലെ ഓസോൺ പാട്ടി മനുഷ്യ പ്രവർത്തനങ്ങളാൽ നശിക്കുകയും അത് ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുകയും ചെയ്യുന്നു ഓസോൺ പാളിയ്ക്ക് ഹാനികരമാകുന്ന ഉപകരണങ്ങളും പ്രത്യേകിച്ചും ക്ലോറോ ഫ്ളൂറോ കാർബൺ പുറംതള്ളുന്ന ഉപകരണങ്ങളും പരമാവധി ഒഴിവാക്കാൻ ഓസോൺ ദിനം ഓർമ്മിപ്പിക്കുന്നു പ്രളയ ദുരന്തത്തെ തുടർന്ന് ആഗോള താപനം കാലാവസ്ഥാ മാറ്റം എന്നിവ സംബന്ധിച്ച് സജീവ ചർച്ചകൾ നടക്കുന്ന വേളയിൽ സംസ്ഥാനത്ത് ഓസോൺ ദിനം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു

മത്സരങ്ങൾ നാളെ രാവിലെ തുടങ്ങും

രണ്ടുവീതം മത്സരങ്ങളാണ് നടക്കുക ട്ടടടടടട ലോവർ പെരിയാർ ്പദ്ധതി ലോവർ പെരിയാർ പദ്ധതിയുടെ ഭാഗമായ ഇടുക്കി പാംബ്ള അണക്കെട്ടിൽനിന്നുള്ള വൈദ്യുതി ഉത്പാദനം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി ബോർഡ് ഉന്നതാധികാരികൾ അണക്കെട്ടിൽ എത്തി പരിശോധന നടത്തി

ഇടുക്കി അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്ന് ഉണ്ടായ വെള്ളപ്പാച്ചിലിലാണ് കരിമണൽ പവർഹൌസിലെ പ്രവർത്തനം നിലച്ചത് പാംബ്ള ഡാമിൽനിന്നുള്ള വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിച്ചിരുന്ന കരിമണൽ പവർഹൌസിൽ വെള്ളം കയറി ചെളിയും മണലും അടിഞ്ഞ് ഉപകരണങ്ങൾ തകരാറിലായി അറുപത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന മൂന്ന് ജനറേറ്ററുകളാണ് കരിമണൽ പവർഹൌസിലുള്ളത് ടടടടടടട അനെർട്ട് ഇടുക്കി ജില്ലയിൽ അനെർട്ട് മുഖ്ലേന സ്ഥാപിച്ചതും പ്രകൃതിക്ഷോഭം മൂലം തക്കര്മാർ ് സംഭവിച്ചതുമായ സൌരോർജ്ജ ഉപകരണങ്ങൾ ബ്യോഗ്യാസ് പ്ലാന്റുകൾ മെച്ചപ്പെട്ട വിറക് ആടുപ്പുകൾ എന്നിവ സർവ്വീസ് ചെയ്യുന്നതിന് ആവ്യക്യമായ വിവരശേഖരണം അനെർട്ട് നടത്തുന്നു

പ്രജനന കേന്ദ്രങ്ങളും ഉറവിടങ്ങളും നശിപ്പിക്കുന്നതിലൂടെ കൊതുകുകളുടെ സാന്ദ്രത കുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കലക്ടറേറ്റ് അങ്കണത്തിൽ ജില്ലാകലക്ടർ ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു

ഒ ഓഫീസുകളിൽ നിന്ന് അനുമതി വാങ്ങണ്മെന്ന് അധികൃതർ അറിയിച്ചു